എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി ജംഷഡ്പൂർ എഫ് സി മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി ബഹിരാകാശ പദ്ധതിയുടെ പ്രയോജനങ്ങൾ പാവപ്പെട്ടവർക്ക് കൂടി ഉറപ്പുവരുത്തുക എന്നതാണ് രാജ്യത്തിന്റെ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബഹിരാകാശ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ അക്കാദമിക വിദഗ്ദ്ധർ എന്നിവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് അവരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയ വിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി താമസിയാതെ ഇന്ത്യ ബഹിരാകാശ സ്ഥാപനങ്ങളുടെ നിർമ്മാണ ഹബ്ബായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദേദ ലോകത്തെ ഏറ്റവും വലിയ ആവർത്തനോർജ്ജ പാർക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ തറക്കല്ലിടും കച്ച് ജില്ലയിലെ ഖാവ്ദ ഗ്രാമത്തിനടുത്ത് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നാണ് പാർക്ക് നിർമ്മിക്കുന്നത്

ഡീസാലിനേഷൻ പ്ലാന്റിനും സർഹദ് ഡയറിയുടെ പൂർണ ഓട്ടോമാറ്റിക് പാൽ സംസ്കരണ കേന്ദ്രത്തിനും ഇതോടൊപ്പം പ്രധാനമന്ത്രി തറക്കല്ലിടും

ദേദ കാസർകോട് ജില്ലയിലെ കല്ല്യോട് പെരിയ മൂലക്കണ്ടം എന്നിവിടങ്ങളിൽ സി

എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആറ് പേർക്ക് പരിക്കേറ്റു അമ്പലത്തറയിൽ പൊലീസ് ജീപ്പ് തകർത്ത അക്രമികളെ തുരത്താൻ പൊലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ദേദ എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ നടന്ന സംഘർഷം സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എറണാകുളം ജില്ലാ കലക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു വോട്ട് ചെയ്യാനെത്തിയ ആളുകളെ തടഞ്ഞവർക്കെതിരെ കേരള എപ്പിഡമിക് ഓർഡിനൻസ് അനുസരിച്ചും പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാ നിയമമനുസരിച്ചും കേസെടുത്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കി ദര സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം വോട്ടെണ്ണലിന് സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു

ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക വോട്ടെണ്ണൽ വിവരം തത്സമയം ട്രൻഡ് വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും ഉച്ചയോടെ ഫലമറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ അടുത്ത തിങ്കളാഴ്ച നടക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു

നാളെ രാവിലെ എട്ടുമണി മുതൽ വാർഡുതലം മുതൽ സംസ്ഥാനതലം വരെ വോട്ടെണ്ണൽ പുരോഗതി തടസ്സങ്ങളില്ലാതെ അറിയാനാകും

തദ്ദേശ സ്ഥാപനങ്ങളിലെ മേൽക്കൈ നിലനിർത്താനാവുമെന്നാണ് എൽ

കൂടുതൽ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറ്റം കുറിക്കാൻ കഴിയുമെന്ന് യു

മികച്ച പ്രകടനത്തിലൂടെ കൂടുതൽ സീറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ലഭിക്കുമെന്നാണ് എൻ ഡി എയുടെ പ്രതീക്ഷ

എഫും ബി

പിയും നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ നടപടി മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതുകൂടി മനസ്സിലാക്കിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു ദേദ സമയത്തിന് മുൻപേ വോട്ട് ചെയ്തുവെന്ന പരാതിയിൽ മന്ത്രി എ

ഏഴുമണിക്കാണ് വോട്ട് ചെയ്തതെന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ വിശദീകരണം അംഗീകരിച്ചാണ് തീരുമാനം

ദ്ദേ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നാം പിന്തുടരുന്ന കോവിഡ് പശ്ചാത്തലത്തിലെ ജീവിതക്രമം പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സഹായിച്ചിട്ടുണ്ടെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ എം

ദേദ നെയ്യാറ്റിൻകര മുൻ എം

ഇന്നലെ വൈകിട്ട് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

സംസ്കാരം ഇന്ന് വൈകീട്ട് നാലിന് കാഞ്ഞിരംകുളത്തെ കുടുംബ വീട്ടുവളപ്പിൽ നടക്കും

ആർ തങ്കരാജിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി

നിയമസഭാ പ്രവർത്തനങ്ങളിൽ ഗൌരവമായി ഇടപെടുകയും നാടിന്റെ വികസനത്തിന് ജനങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത നേതാവായിരുന്നു തങ്കരാജെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു

കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണന്റെ അന്ത്യം

ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു

വി പ്രദീപ് വാഹനാപകടത്തിൽ മരിച്ച സംഭവം അന്വേഷിക്കാൻ പൊലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു

ഇന്നലെ വൈകീട്ട് മൂന്നരയോടെ തിരുവനന്തപുരം കാരയ്ക്കാമണ്ഡപത്തിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് എസ്

ഇന്ന് രാത്രി ഹൈദരാബാദ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും ദേദ ഐഎഫ്എ ഷീൽഡ് കപ്പ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്

ഇന്നലെ പശ്ചിമ ബംഗാളിൽ നടന്ന മത്സരത്തിൽ മുഹമ്മദൻസ് എസ് സി എതിരില്ലാത്ത ഒരു ഗോളിന് ഗോകുലത്തെ കീഴ്പ്പെടുത്തി സെമിയിലെത്തി ആദ്യസെമിയിൽ മുഹമ്മദൻസ് റിയൽ കശ്മീരുമായി ഏറ്റുമുട്ടും